കോവിഡ് നിർണയ പരിശോധ്നുതിൽ രാജ്യം നേടിയ വൻ പൂരോഗതിയാണ് മരണ നിരക്ക് ഗ്ലണ്യമായി കുറയ്ക്കാൻ സഹാ യിച്ചതെന്ന് ആരോഗൃ മന്ത്രാലൂയം

ന് കേരളത്തിൽ കോവീഡ് വ്യാപന നിയന്ത്രണം മുൻ നിർത്തി പ്രഖ്യാപിച്ച നിരോധനാജ്ഞയെ തുടർന്ന് നടപടികൾ കൂടുതൽ ശക്തമാക്കി

കർഷകർക്ക് സ്വന്തം വിളകൾ വിപണനം ചെയ്യുന്നതിലുള്ള നിയന്ത്രണം നീക്കാനാണ് കാർഷിക മേഖലയിലെ നിയമ നിർമ്മാണം കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര മന്ത്രി വി

കൊച്ചിയിൽ നാവികസേനയുടെ ഗ്ലൈഡർ തകർന്ന് രണ്ട് നാവിക ഉദ്യോഗസ്ഥർ മരിച്ചു

ഐ

എൽ ക്രിക്കറ്റിൽ ഇന്ന് ആദ്യ മത്സരം മുംബൈ ഇന്ത്യൻസും സൺ റൈസസ് ഹൈദരാബാദും തമ്മിൽ രണ്ടാം മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

ലോകത്ത് കൂടുതൽ പേർ കോവിഡ് മുക്തി നേടിയ രാജ്യമാണ് ഇന്ത്യ

രോഗമുക്തി കേസുകളും സജീവമായ കേസുകളും തമ്മിലുള്ള അന്തരം ക്രമേണ വർദ്ധിക്കുകയാണ്

വേഗത്തിലുള്ള രോഗനിർണയത്തിനും യഥാസമയം നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും കൃത്യമായ ചികിത്സയ്ക്കും ഉയർന്ന പരിശോധന നിരക്ക് സഹായിച്ചു ഇത് രാജ്യത്തെ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചതായി ആരോഗ്യ മന്ത്രാലയം വൃക്തമാക്കി വിശദാംശങ്ങളുമായി ദേവി പ്രിയ

പ്രതിദിന കോവിഡ് പരിശോധനകളുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നാണ് ഈ വർഷം ആദ്യം പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമായിരുന്നു കോവിഡ് പരിശോധനകൾ നടന്നിരുന്നത്

ദശലക്ഷത്തിൽ അമ്പതിനായിരത്തോളം പേരാണ് കോവിഡ് പരിശോധനകൾക്ക് വിധേയരാകുന്നത്

ബീഹാർ ഗുജറാത്ത് ഉത്തർപ്രദേശ് മണിപ്പൂർ തെലങ്കാന ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കണ്ടെയിൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണമാണ്

കണ്ടെയിൻമെന്റ് സോണിൽ വിവാഹവും ശവസംസ്കാരവും ഒഴികെ അഞ്ചുപേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പൊതു പരിപാടികളോ കൂടിച്ചേരലുകളോ പാടില്ല

പൊതുപരീക്ഷകളും പിഎസ്സി പരീക്ഷകളും മുൻനിശ്ചയിച്ചതനു സരിച്ച് നടത്തും

വിപണി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കർഷകർക്കുണ്ട് ചില സംസ്ഥാനങ്ങളിൽ അത് നിഷ്യേധിക്കപ്പെട്ടിട്ടുണ്ട്

കാർഷിക നിയമങ്ങൾ യാഥാർഥ്യമായതോടെ ്രകർഷകർക്ക് അവരുടെ ഉൽപ്പന്ന ങ്ങൾ രാജ്യത്ത് എവിടെയും വിൽക്കാൻ അവസരമൊരുങ്ങുകയാണ്

എസ് ഗരുഡയിൽ നിന്നുള്ള പരിശീലന പറക്കലിനിടെ ഗ്ലൈഡർ കൊച്ചി തോപ്പുംപടി പാലത്തിനു സമീപം ഇന്നു രാവിലെ ഏഴ് മണിയോടെ തകർന്നു വീഴുകയായിരുന്നു ലഫ്റ്റനന്റ് രാജീവ് ഝാ നേവി ഓഫീസർ സുനിൽ കുമാർ എന്നിവരാണ് മരിച്ചത്

സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ദക്ഷിണ നാവിക കമാന്റ് ഉത്തരവിട്ടിട്ടുണ്ട്

എല്ലാ സർക്കാർ ഓഫീസുകളിലും ദേശീയപതാക താഴ്ത്തികെട്ടി

കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കുവൈറ്റ് അമീറിന്റെ അന്ത്യം

ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തിരെ ഡൽഹി കൃാപിറ്റൽസും രാജസ്ഥാൻ റോയൽസിനെതിരെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സുമാണ് വിജയികളായത്

സന്ദർശനവേളയിൽ പ്രതിനിധി സംഘം മ്യാൻമാർ സ്റ്റേറ്റ് കൌൺസിലർ ആംഗ് സാൻ സൂകി മ്യാൻമാർ സായുധ്സേനയുടെ കമാൻഡർ ഇൻ ചീഫ് സീനിയർ ജനറൽ മിൻ ആംഗ് ഹേലിംഗ് എന്നിവരെ സന്ദർശിക്കും ഇരുരാജ്യങ്ങളും തമ്മിലുളള പരസ്പര സഹകരണവും ഉഭയകക്ഷിബന്ധവും ശക്തിപ്പെടുത്തുന്നതിന് സന്ദർശനം അവസരമൊരുക്കും

ഇന്ന് പുലർച്ചെ പൂഞ്ച് ജില്ലയിലെ മങ്കോട്ടെ സെക്ടറിൽ നിയന്ത്രണ രേഖയിലാണ് പാകിസ്ഥാൻ മോർട്ടാർ ഷെല്ലാക്രമണവും വെടിവെയ്പ്പും നടത്തിയത് പാക് സൈനൃത്തിന്റെ പ്രകോപന പരമായ നടപടികൾക്കെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്ന തായി ഡിഫൻസ് പി ആർ ഒ അിറയിച്ചു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല

രണ്ട് നാവികസേനകളിൽ നിന്നുമുള്ള കപ്പലുകൾ ഉപരിതല യുദ്ധ പരിശീലനം ഹെലികോപ്റ്റർ ഓപ്പറേഷൻ എന്നിവയിൽ പങ്കെടുത്തു ഇതിനെ തുടർന്ന് നടക്കുന്ന മൂന്നാം പതിപ്പിൽ ഇരു നാവികസേന കളും അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ് സംയുക്ത പട്രോളിംഗ് നടത്തും

വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും സിബിഐ അന്വേഷണം നടത്തണമെന്ന് ശുപാർശ്ച് ചെയ്തതായി അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

നേരത്തെ എസ്

റ്റി അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരുന്നു

ഭക്ഷണം കഴിക്കാൻ എത്തുന്ന വരുടെ വിവരങ്ങൾ ശേഖരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഡിജിറ്റൽ പണമിടപാടുകൾക്ക് പ്രാധാന്യം നൽകണം കോവിഡ് മാനദണ്ഡ ങ്ങൾ കർശനമായി പാലിക്കണം

രോഗലക്ഷണങ്ങൾ ഉള്ള കോവിഡ് രോഗികൾക്ക് കൃത്യമായ മെഡിക്കൽ ന്നിർദേശങ്ങളുടെ അടി സ്ഥാനത്തിൽ രോഗികളുടെ സമ്മത്ത്ത്തിട്ടുകൂടി മാത്രം മരുന്ന് ഉപയോഗിക്കാം